ആക്രമണം

ഗുവാഹത്തിയിൽ നടക്കും

ജെ

പത്ത് ദിവസത്തെ പൊതുജന സമ്പർക്ക പരിപാടി ദില്ലിയിൽ ബി ജെ

പാർട്ടി വർക്കിംഗ് പ്രസിഡൻ് ജെ

കേന്ദ്രമന്ത്രിമാർ രാജ് ഉൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ

നേതാക്കളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വീടു വീടാന്തരമുള്ള പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും പ്രചാരണവേളയിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും മൂന്ന് കോടി കുടുംബങ്ങളുടെ പിന്തുണ തേടും

യാത്രക്കാർക്കോ കോർപ്പറേറ്റുകൾക്കോ ഏജന്റുമാർക്കോ ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും വിപുലീകരണമുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി എയർ ഇന്ത്യ മുന്നോട്ട് പോകുമെന്നും എയർ ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ്കൃ സ്കൃതറക്ടറുമായ അദ്ദേഹം വൃക്തമാക്കി ദേശീയ വിമാന കമ്പനിയ്യായ് എയർ ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർല്ലെൻ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ആക്രമണത്തിലൂടെ വധിച്ചതിനു പിന്നാലെ ഇറാക്കിലെ യു

കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേശ്

എസ് എംബസി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയാണ് ഗ്രീൻ സോൺ ഇതിനു പിന്നാലെ യു

സേന താവളമടിച്ചിരിക്കുന്ന വ്യോമസേന കൃാമ്പിനു നേരെയും രണ്ട് റോക്കറ്റാക്രമണം നടന്നു ഗവൺമെന്റ് ഓഫീസുകളും ഒട്ടേറെ വിദേശ രാജ്യങ്ങളുടെ ഓഫീസുകളുമുള്ള മേഖലയാണ് ഗ്രീൻസോൺ

ഇവിടെയാണ് ഇന്നലെ രണ്ടുതവണ ആക്രമണമുണ്ടായത് ഒരു മോർട്ടാർ സുരക്ഷാ മേഖലയ്ക്കുള്ളിലും രണ്ടാമത്തേത് ഇതിനടുത്തുമാണ് വന്നു വീണത് തുടർന്ന് അപായ സൈറൺ മുഴങ്ങി അതിനുശേഷമാണ് കാത്യുഷ റോക്കറ്റുകൾ വടക്കൻ ബാഗ്ദാദിലെ ബലദ് വ്യോമ താവളത്തിൽ വീണത് എവിടെ നിന്നാണ് റോക്കറ്റ് വീണതെന്ന് അറിയാൻ യു എസ് ആളില്ലാ ഡ്രോണുകൾ അയച്ചിട്ടുണ്ട് അതേസമയം ഇറാനുമായുള്ള യുദ്ധ സാധ്യതകൾക്കെതിരെ വാഷിംഗ്ടൺ ന്യൂയോർക്ക് മറ്റ് ചില യു

നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പ്രതിഷേധം നടന്നു

അമേരിക്കൻ ഉദ്യോഗസ്കാ്ര് ആക്രമിക്കുകയോ സ്വത്തുവകകൾക്ക് നാശം വരുത്തുകയോ ഖ്ചെയ്താൽ ഈ സ്ഥലങ്ങളിൽ ശക്തമായ പ്രത്യാക്രണം ഉടൻ നടത്തുമെന്നും ട്രംപ് ടിറ്ററിൽ കുറിച്ചു

ദേശീയ സയൻസ് കോൺഗ്രസിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ കിഷോർ വൈജ്ഞാനിക സമ്മേളനം നോബൽ സമ്മാന ജേതാവ് പ്രൊഫസർ അഡാ യോനാഥും ഭാരത രത്ന ജേതാവ് സി

ശാസ്ത്ര മേഖലയിൽ ജിജ്ഞാസ വളർത്താനും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ദുരന്തങ്ങളെ നേരിടാൻ തയ്യാറാകാനും പ്രൊഫസർ അഡാ യോനാഥ് ആവശ്യപ്പെട്ടു ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം കൊള്ളാൻ പ്രമുഖ ശാസ്ത്രജ്ഞൻ സി

ആർ റാവു പറഞ്ഞു

ജെ

പാക്കിസ്ഥാൻ പോലുള്ള അയൽ രാജ്യങ്ങളിൽ മതപരമായി പീഢ്ന്നം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനായി എൻ ഡി

ഗുരുദാരയ്ക്കു നേരെയുണ്ടായ ആക്രമണത്തെ കോൺഗ്രസ്സ് നേതാവ് രാഹുൽഗാന്ധിയും അപലപിച്ചു

പ്രതിനിധി സംഘം നങ്കണ സാഹിബിലെ സിഖ് കുടുംബാംഗങ്ങളെ സന്ദർശിക്കുമെന്ന് എസ്

നേതാവ് ഗോവിന്ദ് സിംഗ് ലോങ്ഗോ വാൾ മാധ്യമപ്രവർത്തരോട് പറഞ്ഞു ആക്രമണത്തിൽ ശക്തമായി അപലപിച്ച എസ്

സി

പരിക്ക് ഭേദമായതിനെ തുടർന്ന് ജസ്പ്രീത് മുംബ്ര ശിഖർ ധവാൻ എന്നിവർ ടീമിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്

വെസ്റ്റ് ഇൻഡ്യൂസ്സിനെതിരായ പരമ്പരയിൽ വിജയം ഇന്ത്യയ്ക്കായിരുന്നു മത്സരത്തിന് ിവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായികഴിഞ്ഞു ഗുവാഹൃത്തിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്

ചെയ്യും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോൺ ആശുപത്രയിൽ കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഉത്തരവാദിത്വം വ്യക്തമാക്കണമെന്ന് സംസ്ഥാന ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് ഇന്നലെ ആശുപത്രി സന്ദർശിച്ചശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂട്ടികളുടെ മരണത്തിൽ താൻ ഏറെ ദുഖിതനാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവത്തിൽ ഗവൺമെന്റിന്റെ പ്രതികരണം ഒട്ടും തൃപ്തികരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു മക്കളെ നഷ്ടപ്പെട്ടവർക്ക് ഗവൺമെന്റിന്റെ ഈ നിലപാട് ഒട്ടും സ്ഥീകാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ സ്പീക്കർ ഓം ബിർല ഇരകളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഉറപ്പുനൽകുകയും ചെയ്തു അതേസമയം ജെ

ലോൺ ആശുപത്രിയിൽ കുട്ടികളുടെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കോട്ടയിലെത്തി ആരോഗ്യ മന്ത്രാലയവും കുടുംബക്ഷേമ മന്ത്രാലയവുമാണ് സംഭവത്തെക്കുറിച്ച് വിശകലനം നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ അയച്ചത്

ശ്രീനഗറിലും അനന്തനാഗിലും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരെക്കുറ്റിച്ച്പുരാതികൾ ലഭിച്ചതായും ഇതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്രെന്നും് അദ്ദേഹം പറഞ്ഞു

ഇത്തരം ഊഹാപോഹങ്ങളിൽ ശ്രദ്ധ് വിശ്വസിക്കരുതെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ജമ്മുകാശ്മീരിൽ സംഘടിപ്പിച്ചിട്ടുള്ള നൈപുണ്യ വികസന പരിപാടിയിൽ പൊതു ധനകാര്യ നിയമം ഇ ഗവേണൻസ് എന്നിവ സംബന്ധിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അവബോധം നൽകി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ജമ്മുകാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പബ്ലിക് അഡ്മിനിട്രേഷൻ ആന്റ് റൂറൽ ഡവലപ്മെന്റ് എന്നീ സ്ഥാപനങ്ങളിലെ വിദഗ്ദ്ധരാണ് പരിശീലനം നൽകുന്നത് മൂന്നു ദിവസത്തെ പരിപാടി ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു

ഉത്തരാഖണ്ഡ് തലസ്ഥാനമായ ഡറാഡൂണിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിമാരായിരുന്ന ജവഹർലാൽ നെഹ്റുവും ലിയാഖാത്ത് അലി ഖാനും തമ്മിൽ കരാർ ഉണ്ടാക്കിയിരുന്നതായി ജയറാം താക്കൂർ പറഞ്ഞു ഈ കരാർ ഇന്ത്യ പാലിക്കുമ്പോൾ പാക്കിസ്റ്റാനിലെ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ അവസ്ഥ വളരെ ദ്ദ്യൂനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു

ജയറാം താക്കൂർ പ്പൃക്തമാക്കി

ട്രിപോളിയുടെ തെക്കൻ പ്രദേശങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ആക്രമണങ്ങൾ നേരിടുകയാണ്

ഗാന്ധി എഴുത്തുകാരുടെ എഴുത്തുകാരൻ എന്നതാണ് മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പുസ്തകോത്സവത്തിന്റെ സന്ദേശം